ത സിഡ്നിയിൽ ഇന്ത്യക്കെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയക്ക് നാല് വിക്കറ്റ് നഷ്ടമായി

വാർത്തകൾ വിശദമായി ഭാവിയിലെ വെല്ലുവിളികൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് നിയമ നിർമ്മാതാക്കൾ ചിന്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി എം

ജനാധിപത്യത്തിന്റെ ഫലപ്രദമായ നിർവഹണത്തിന് നിയമനിർമാതാക്കൾ കഴിവും പ്രതിബദ്ധതയും ജനബന്ധവും ഉള്ള വരാകണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു രംഭ രാജ്യത്തെ കൊവിഡ് സാഹചര്യവും വിവിധ സംസ്ഥാന ങ്ങളിലെയും കേന്ദ്രഭരണ ക്രദേശങ്ങളിലെയും വാക്സിനേഷൻ മുന്നൊരുക്കങ്ങളും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗം വിലയിരുത്തി ക്യാബിനറ്റ് സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

രും പ്രകൃതി ക്ഷോഭത്തിൽ പൊതുജനങ്ങൾ ദുരിതമനുഭവിക്കാതി രിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഐ ടി അധിഷ്ഠിത സേവനങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു സംസ്ഥാന ഐ ടി മിഷനും അക്ഷയക്കും വേണ്ടി നിർമിച്ച ആസ്ഥാന മന്ദിരമായ സാങ്കേതിക യുടെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രളയബാധിത പ്രദേശങ്ങളിലെ നിരവധി പേർക്ക് വിലപ്പെട്ട രേഖകൾ നഷ്ടമായപ്പോൾ ഇവ ലഭ്യമാക്കാൻ പ്രത്യേക അദാലത്തുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ടി അധിഷ്ഠിത സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് മാപ്പത്തോൾ പദ്ധതിയെന്നും ഐ ടി മിഷൻ പ്രതിബദ്ധതയോടെ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും മുഖ്യമന്ത്രി നിർദേശിച്ചു രും കൊവിഡ് പ്രതിസന്ധിയെ അവസരമാക്കി ഉപയോഗപ്പെടുത്തു ന്നതിനോടൊപ്പം അത് സൃഷ്ടിച്ച ഗുണപരമായ മാറ്റങ്ങൾ വെല്ലുവിളിയായി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി

ജനങ്ങൾക്ക് ഏറെ ദുരിതങ്ങളുണ്ടായ കാലത്ത് മലിനീകരണവും റോഡ് ഗതാഗതം കുറഞ്ഞതും പരിസ്ഥിതിക്ക് പുനരുജ്ജീവനം നൽകി പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം മിക്ക രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ കൊവിഡ് സാരമായി ബാധിച്ചപ്പോൾ പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചെന്ന് മുരളീധരൻ പറഞ്ഞു

മുരളീധരൻ വ്യക്തമാക്കി രുര കാർഷിക നിയമം കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന തിനാണെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലെ പറഞ്ഞു കർഷകരുടെ പ്രശ്നങ്ങളോട് കേന്ദ്രഗവൺമെന്റിന് അനുഭാവ സമീപനമാണെന്ന് മന്ത്രി ഹൈദരബാദിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കാർഷിക നിയമം കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതും ഭൂമിയുടെ മേൽ അവരുടെ അവകാശം സംരക്ഷിക്കുന്നതാണെന്നും രാംദാസ് അത്തേവാലെ പറഞ്ഞു രും രാജ്യത്തെ അതിന്റെ പൈതൃകസ്വഭാവ സവിശേഷതകളിലേക്ക് കൊവിഡ് തിരികെ എത്തിച്ചതായി കേന്ദ്രസഹമന്ത്രി ഡോ

സാമൂഹിക അകലം ശുചിത്വം ആയുർവേദം പരമ്പരാഗത വൈദ്യം യോഗ എന്നിവയുടെ പ്രാധാന്യം ഈ മഹാമാരിക്കാലം നമുക്ക് വ്യക്തമാക്കിതന്നതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു രുമ അടിസ്ഥാന വികസന മേഖലയിൽ സംസ്ഥാന ഗവൺമെന്റ് വരുത്തിയത് വലിയ മാറ്റങ്ങളാണെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു പുതിയ സാങ്കേതിക വിദ്യകൾ നിർമാണ രീതികൾ ശക്തമായ മേൽനോട്ടം എന്നിവ വികസന മേഖലയിൽ വലിയ പരിവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂർ വടകര റോഡ് വീഡിയോ കോൺഫ്രൻസി ലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രംഭ അതിരപ്പിള്ളി ആദിവാസി മേഖലകളിൽ നിന്നും കർഷർ ഉൽപാദിപ്പിക്കുന്ന തനത് ഉൽപന്നങ്ങൾ ലോകോത്തര നിലവാരത്തിൽ പൊതു ബ്രാന്റാക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വി

കർഷകർക്കായി നടപ്പാക്കുന്ന ട്രൈബൽവാലി പദ്ധതിയുടെ ഭാഗമായ സെൻട്രൽ പ്രൊസസിംഗ് യൂണിറ്റിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി കർഷകരുടെ ഉൽപന്നങ്ങൾ ആദിവാസികൾ ശേഖരിക്കുന്ന വനവിഭവങ്ങൾ തുടങ്ങിയവ ശാസ്ത്രീയമായി സംസ്കരിച്ച് മൂല്യ വർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി അവയെ പൊതു ബ്രാന്റാക്കി വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു രുമ സംസ്ഥാനത്ത് സിനിമ തിയേറ്ററുകൾ ഉടൻ തുറക്കില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് അറിയിച്ചു കൊച്ചിയിൽ ഇന്നലെ ചേർന്ന ഫിയോക്കിന്റെ സമ്പൂർണ്ണ യോഗത്തിലാണ് തീരുമാനം

യുമായി ഏറ്റുമുട്ടും രുമ കൊൽക്കത്തയിൽ ഐ ലീഗ് ഫുട്ബോളിൽ ഇന്നലെ ചെന്നൈയിൻ സിറ്റി എഫ് സി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഗോകുലം കേരളയെ തോൽപിച്ചു

രംഭ ആർദ്രം ദൌത്യത്തിന്റെ ഭാഗമായി കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഒ പി ബ്ലോക്ക് ഇന്ന് മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും

രും ഇടുക്കി ജില്ലയിൽ കോളനി നിവാസികൾക്ക് പട്ടയം കൊടുക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്ന് മന്ത്രി ഇ

മൂന്നാർ ടി കൌണ്ടിയിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അവലോകനയോഗത്തിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം അര സെന്റ് മുതൽ പത്ത് സെന്റ് വരെ വീടുവെച്ച് കഴിയുന്നവർക്കും പട്ടയം നൽകാൻ കഴിയുമോ എന്ന് ഉദ്യോഗസ്ഥർ ആലോചിക്കണമെന്ന് ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു

അടുത്തമാസം പകുതിയോടെ പതിനായിരം പേർക്ക് പട്ടയം നൽകുന്ന നടപടികൾ വേഗത്തിലാക്കാനും ഇ ചന്ദ്രശേഖരൻ ഉദ്യോഗസ്ഥർക്ക് നിർദേശം നൽകി

വ്യാജ പട്ടയം ചമച്ച് സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയ അഞ്ചേക്കറിലധികം ഭൂമിയും കെട്ടിടങ്ങളും കഴിഞ്ഞ ഒക്ടോബറിലാണ് റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ചത് രും നിർമാണം പൂർത്തിയാക്കിയ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലെ പെരിയവരെ പാലം മന്ത്രി ജി

രുര ഇന്ത്യൻ ഇൻഫർമേഷൻ സർവ്വീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ എസ് വി മേനോൻ തിരുവനന്തപുരത്ത് നിര്യാതനായി

ഫിലിംസ് ഡിവിഷനിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച മേനോൻ ഫീൽഡ് പബ്ലിസിറ്റി ഫിലിം ആർക്കേവ്സ് പി ഐ ബി ഡി

പി തുടങ്ങി വിവിധ കേന്ദ്ര മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഫീൽഡ് പബ്ലിസിറ്റി കേരളാ ലക്ഷദ്വീപ് മേഖലാ ഡയറക്ടറുമായിരുന്നു

കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ആഘോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഇത്തവണ ചടങ്ങുകൾ രുര സംസ്ഥാന സഹകരണ ബാങ്കുകളുടെ സ്വതന്ത്രാധികാരം ഇല്ലായ്മ ചെയ്യുന്ന കേന്ദ്രഗവൺമെന്റിന്റെ നീക്കം ചെറുക്കണമെന്ന് സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി ആവശ്യപ്പെട്ടു സഹകരണസംഘങ്ങൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന നിയമമനുസ രിച്ചാണെന്നും കേന്ദ്ര നീക്കത്തിനെതിരെ സർവ്വകക്ഷി യോഗം വിളിച്ച് നടപടികൾ ശക്തമാക്കണമെന്നും യൂണിയൻ ചെയർമാൻ കോലിയക്കോട് എൻ കൃഷ്ണൻനായർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു രും കോഴിക്കോട് ജില്ലയിലെ കാക്കൂർ ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന് പുതുതായി നിർമിച്ച ഗോഡൌൺ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പ്രളയത്തിൽ കാലിത്തീറ്റ സൂക്ഷിച്ച ഗോഡൌൺ വെള്ളം കയറി നശിച്ചിരുന്നു

നമ്പ്യാർ പാലയാട് സ്വദേശിനി കാർത്തിക അണ്ടലൂർ എന്നിവർ അർഹരായി